ആറളം വനത്തിൽ ഉരുൾപൊട്ടി

ഇടുക്കി ഡാം തുറക്കേണ്ടി വരികയാണെങ്കിൽ തുടർ സാഹച ര്യങ്ങൾ നേരിടാൻ ആവശ്യമായ എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തി യാ ക്കിയ തായി മന്തി ഇ ചന്ദ്രശേഖരൻ തിരുവനന്തപുരത്ത് അറിയിച്ചു

വെള്ളം കയറി നാശനഷ്ടങ്ങൾ ഉണ്ടാവാ തിരിക്കാൻ ആവശ്യമായ സന്നാഹങ്ങളും ഉപകരണങ്ങളും ഗവൺമെന്റ് സജ്ജീകരിച്ചിട്ടുണ്ട് അണക്കെട്ട് തുറക്കുന്നതിന്റെ പേരിൽ ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ലെന്നും എന്നാൽ ജാഗ്രത പുലർത്തണമെന്നും മന്ത്രി നിർദേശിച്ചു പകൽ സമയത്ത് ജന ങ്ങൾക്ക് മുന്നറിയിപ്പുകളും നിർദേശങ്ങളും നൽകി മാത്രമേ അണ ക്കെട്ടിന്റെ ഷട്ടറുകൾ തുറക്കൂഎന്ന് ഇ ചന്ദ്രശേഖരൻ വ്യക്തമാ ക്കി ഇടുക്കി എറണാകുളം കോട്ടയം ജില്ലകളിൽ അവധി യിൽപോയ റവന്യു ഉദ്യോഗസ്ഥരെ തിരികെ വിളിച്ചു ഇടുക്കി ഡാമിന്റെ ഷട്ടറുകൾ തുറക്കുന്നത് സംബന്ധിച്ച് ആശ ങ്കവേണ്ടെന്ന് മന്ത്രി എം

ഒറ്റയടിക്ക് ഷട്ടറു കൾ തുറക്കില്ലെന്നും ഘട്ടംഘട്ടമായി മാത്രമേ ഇത്തരം നടപടിക ളിലേക്ക് കടക്കൂ എന്ന് മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു ആവ ശ്യമായ മുൻകരുതലുകൾ സ്വീകരിച്ചിട്ടുണ്ട് ജനങ്ങളെ ബുദ്ധിമു ട്ടിക്കാതെയായിരിക്കും നടപടി തുടങ്ങുകയെന്നും ഓരോ ഘട്ട ത്തിലും വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ സ്ഥിതി വിലയിരു ത്തന്നുണ്ടെന്നും മന്ത്രി അറിയിച്ചു ഗവൺമെന്റ് വകുപ്പുകൾ ഇതു മായി ബന്ധപ്പെട്ട് പൂർണ സജ്ജമാണെന്നും എം എം മണി പറ ഞ്ഞു സംസ്ഥാനത്ത് വീണ്ടും കനത്ത മഴ

ഇടിയോടുകൂടിയാണ് മഴ പെയ്യുന്നത് തിരുവനന്തപുരത്ത് നെയ്യാർ ഡാമിന്റെ ഷട്ടർ മൂന്ന ടിയും അരുവിക്കര പേപ്പാറ അണക്കെട്ടുകളുടെ ഷട്ടറുകൾ ഒന്ന രമീറ്റർ വീതവും ഉയർത്തി

നാളെ വരെ കനത്ത മഴ തുടരുമെന്നാണ് കാലാവസ്ഥാനിരീ ക്ഷണകേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്

കടൽ പ്രക്ഷുബ്ധമാകാനും സാധ്യതയുണ്ട് വേലിയേറ്റ സമയത്ത് തീരപ്രദേശത്ത് തിരമാലകൾ അടിച്ചുകയ റാൻ സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പുണ്ട് തീരത്തിനടുത്ത് നിർത്തി യിട്ടിരിക്കുന്ന ബോട്ടുകളുടെ കൂട്ടിയിടി ഒഴിവാക്കാൻ നിശ്ചിത അകലം പാലിക്കണമെന്നും കാലാവസ്ഥാകേന്ദ്രം അറിയിച്ചു ബോട്ടുകൾ കടലിലേക്ക് കൊണ്ടുപോകുന്നതും തിരിച്ചുകൊണ്ടു വരുന്നതും ഒഴിവാക്കണം കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ അനിഷ്ടസംഭവങ്ങൾ ഒഴി വാക്കാൻ മുൻകരുതൽ സ്വീകരിക്കണമെന്നും ദുരന്ത നിവാരണ അതോറിറ്റി ജനങ്ങളോട് ആവശ്യപ്പെട്ടു കണ്ണൂർ ജില്ലയിൽ ആറളം വനത്തിൽ ഉരുൾപൊട്ടി

കാക്കയങ്ങാട് ആറളം ഫാം കീഴ്പള്ളി റൂട്ടിൽ ഗതാഗതം തട സ്സപ്പെട്ടു കാക്കയങ്ങാട് നഗരവും മണത്തണ നഗരവും വെള്ള ത്തിൽ മുങ്ങിപ്പോയി

കണ്ണൂർ ജില്ലയിൽ ഇടിമിന്നലോടുകൂടിയ കനത്ത മഴ തുടരു കയാണ് മലയോരമേഖലയിൽ ഇന്നലെ അർധരാത്രിയോടെ തുട ങ്ങിയ മഴയ്ക്ക് ശമനമാകാത്തതിനാൽ ഇരിട്ടി മേഖലയിൽപ്പെട്ട ഏഴ് പഞ്ചായത്തുകളിലെ സ്കൂളുകൾക്ക് ജില്ലാകലക്ടർ ഇന്ന് അവധി നൽകി പകരം മറ്റൊരു ദിവസം പ്രവൃത്തിദിനമായിരിക്കു മെന്ന് കലക്ടർ അറിയിച്ചു കൊട്ടിയൂർ കേളകം കണിച്ചാർ തില്ല ങ്കേ രി കോളയാട് ചിറ്റാരിപ്പറമ്പ് മുഴക്കുന്ന് പഞ്ചായത്തുകളിലെ സ്കൂളു കൾക്കാണ് അവധി നൽകിയത് കോഴിക്കോട് വയനാട് റോഡിൽ ഈങ്ങാപുഴയിൽ നദി കര കവിഞ്ഞതിനെ തുടർന്ന് ഗതാഗതം തടസ്സപ്പെട്ടു കോഴിക്കോട് കക്കയം റൂട്ടിൽ മണ്ണിടിച്ചിലിനെ തുടർന്നും വാഹനഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ് തലയാട് ഭാഗത്താണ് മണ്ണിടിച്ചിലുണ്ടായത് മലപ്പുറം പാണക്കാട്ട് കാർ കടലുണ്ടിപുഴയിൽ വീണു ഡ്രൈവർ രക്ഷപ്പെട്ടെങ്കിലും വാഹനം കണ്ടെടുക്കാനായില്ല മഴ വീണ്ടും ശക്തമായതോടെ ആലപ്പുഴ ജില്ലയിൽ ജനജീവിതം ദുരിതത്തിലായി കുട്ടനാട്ടിൽ ജലനിരപ്പ് ഉയർന്നു

കുട്ടനാട്ടിലൂടെ ഒഴുകുന്ന നദികളിൽ കിഴക്കൻ വെള്ളത്തിന്റെ വരവ് വർദ്ധിച്ചതാണ് വീണ്ടും മഴക്കെടുതിക്ക് കാരണം പാടശേഖരങ്ങളിലെ വെള്ളം വറ്റിച്ച് കൃഷി പുനരാരഭിക്കാനുള്ള ശ്രമം പുരോഗമിക്കുകയാണ്

അമ്പലപ്പുഴ വണ്ടാനം പ്രദേശത്തെ കടൽക്ഷോഭ ബാധിത മേഖലകളിൽ മന്ത്രി ജി സുധാകരൻ സന്ദർശനം നടത്തി കൊല്ലം ജില്ലയിൽ അതിശക്തമായ മഴ തുടരുന്നു

കൊല്ലം താലൂക്കിൽ മഴയുടെ കാഠിന്യം കൂടുതലാണ് ഇടിയോടുകൂടിയ ശക്തമായ മഴയാണ് രാവിലെ മുതൽ കൊല്ലത്ത് ലഭിക്കുന്നത് ശക്തമായ മഴ തുടർച്ചയായി പെയ്യുന്നതും കടലാക്രമണവും ജില്ലയെ ആശങ്കയിലാക്കിയിട്ടുണ്ട്

ഇതേ തുടർന്ന് അവിടെ നിന്ന് പുറപ്പെ ടേണ്ട ട്രെയിനുകൾ വൈകിയേ യാത്ര പുറപ്പെടൂവെന്ന് റെയിൽവെ അറിയിച്ചു ഇന്നലെ രാത്രി തുടങ്ങിയ മഴ ഇപ്പോഴും തുടരുകയാ ണ്

മതനിരപേക്ഷത ഉയർത്തിപിടിക്കുന്നതാകണം പൊലീസിന്റെ പ്രവർത്തനമെന്നും വിവിധ തലങ്ങളിൽ മതനിരപേക്ഷത ഭീഷണി നേരിടുന്നുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഇക്കാര്യങ്ങളിൽ പൊലീസ് അതീവ ജാഗ്രത പുലർത്തണമെന്ന് മുഖ്യമന്ത്രി നിർദേശം നൽകി തൃശൂർ രാമവർമ്മപുരം പൊലീസ് അക്കാദിമിയിൽ സംസ്ഥാ നത്തെ ആദ്യ വനിതാകമാന്റോ ബറ്റാലിയന്റെ പാസിങ് ഔട്ട് പരേ ഡിൽ സല്യൂട്ട് സ്വീകരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി

സംസ്ഥാനത്ത് വർഷകാല ട്രോളിംഗ് നിരോധനം ഇന്ന് അർധരാത്രി അവസാനിക്കും

ട്രോളിങ് നിരോധനം അവസാനിക്കുമ്പോഴും ശക്തമാകുന്ന കടലാക്രമണമടക്കം കാലാവസ്ഥാമാറ്റങ്ങൾ മത്സ്യബന്ധനത്തിന് പോകുന്നവരെ ആശങ്കയിലാക്കുന്നുണ്ട്

ബോട്ടുകളിൽ ലൈഫ് ജാക്കറ്റ് ഉൾപ്പെടെ ജീവൻരക്ഷാഉപകരണങ്ങൾ കരുതണമെന്നും തൊഴിലാളികൾ തിരിച്ചറിയൽ രേഖകൾ സൂക്ഷണമെന്നും ഫിഷറീസ് വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്

സി പ്രസിഡണ്ട് പ്രഖ്യാപനം ഉടൻ ഉണ്ടായേക്കു മെന്ന് ഡൽഹി റിപ്പോർട്ടുകൾ പറയുന്നു മുതിർന്ന നേതാവ് എ കെആന്റണിയും എ ഐ

സി ജനറൽ സെക്രട്ടറി മുകുൾ വാസ്നിക്കും പാർട്ടി അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുമായി കൂടി ക്കാഴ്ച ആരംഭിച്ചു അന്തിമപട്ടികയിൽ മുല്ലപ്പള്ളി രാമചന്ദ്രനും കെ സുധാകരനും മുൻതൂക്കമെന്നാണ് സൂചന കേരള പൊലീസ് സംസ്ഥാന ഫുട്ബോൾ ടൂർണ്ണമെന്റിന് മല പ്പുറം എം

ആദ്യ മത്സരങ്ങളിൽ ഇടുക്കി ആലപ്പുഴയെയും കോഴിക്കോട് സിറ്റി എറണാകുളം റൂറ ലിനെയും കൊച്ചി സിറ്റി റിസർവ് ബറ്റാലിയനെയും തോൽപ്പിച്ചു

മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് എറണാകുളം ജില്ലയിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും

തുടർന്ന് അതോറിറ്റിയുടെ യോഗത്തിലും അദ്ദേഹം പങ്കെ ടുക്കും ഉച്ചകഴിഞ്ഞ് റിട്ട ജസ്റ്റിസ് രാംകുമാറിന്റെ പുസ്തക പ്രകാ ശനവും തുടർന്ന് സംസ്ഥാന ലൈബ്രറി കൌൺസിൽ പുരസ്കാര സമർപ്പണവും മുഖ്യമന്ത്രി നിർവഹിക്കും പെരുമ്പാവൂരിൽ സബ്ഡിവിഷണൽ പൊലിസ് ഓഫിസ് കെട്ടിടം ഉദ്ഘാടനം ചെയ്യും പിങ്ക് പട്രോളും മുഖ്യമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യും

ടിജലീൽ ഫ്ളാഗ് ഓഫ് ചെയ്യും

തീർത്ഥാടകരെ യാത്രയാക്കാനും പ്രാർത്ഥനയിൽ പങ്കെടു ക്കാനും എത്തുന്നവർക്ക് ഹജ്ജ് കൃാംപിലേക്ക് പ്രവേശനം അനു വദിക്കുമെന്ന് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ തൊടിയൂർ മുഹമ്മദ് കുഞ്ഞി മൌലവി പറഞ്ഞു ശബരിമലയിലെ സ്ത്രീപ്രവേശന പ്രശ്നത്തിൽ സുപ്രീംകോ ടതിയിൽ ഇന്നും വാദം തുടരും സ്ത്രീ പ്രവേശനത്തെ എതിർക്കുന്ന അയ്യപ്പസേവാസമാജത്തിന്റെ വാദമായിരിക്കും ഇന്നാ ദ്യം ഓണക്കാലത്ത് കോഴിക്കോട് ജില്ലയിൽ ലഹരി വസ്തു ക്കളുടെയും വ്യാജ മദ്യത്തിന്റെയും ഒഴുക്ക് തടയാൻ എക്സൈസ് വകുപ്പ് നടപടികൾ കർശനമാക്കി

ഓണക്കാലത്ത് വകുപ്പിന്റെ പ്രവർത്തനം കൂടുതൽ ശക്തമാ ക്കാൻ മന്ത്രി ടി പി രാമകൃഷ്ണന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം ചേർന്ന യോഗത്തിൽ തീരുമാനിച്ചിരുന്നു

ലഹരി ഉപയോഗവും ഉൽപ്പാദനവും സംബന്ധിച്ച ജനങ്ങളുടെ പരാതികൾ അറിയിക്കാൻ ജില്ല താലൂക്ക് തലങ്ങളിൽ കൺട്രോൾ റൂം തുറന്നിട്ടുണ്ട്

കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ കലക്ടർ യു വി ജോസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം

കേന്ദ്ര ശുചിത്വ കുടിവെള്ള മന്ത്രാലയം ആവിഷ്ക്കരിക്കുന്ന പദ്ധതിയിൽ ജില്ലാതലത്തിൽ നടത്തുന്ന സർവേയിലൂടെയാണ് റാങ്കിങ് നിർണ യിക്കുക കോഴിക്കോട് ജില്ലയിൽ നാളെയാണ് സർവേ ആരംഭി ക്കുന്നത് സ്വതന്ത്ര ഏജൻസിയായിരിക്കും പ്രവർത്തനങ്ങൾ വില യിരുത്തുക കോഴിക്കോട് ഞെളിയൻപറമ്പിൽ മാലിന്യത്തിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പ്ലാന്റ് രണ്ടുവർഷത്തിനകം സജ്ജ മായേക്കും തിരുവനന്തപുരത്ത് ചീഫ് സെക്രട്ടറിയുടെ സാന്നിധ്യ ത്തിൽ ചേർന്ന യോഗത്തിലാണ് ഇതുസംബന്ധിച്ച തീരുമാനമു ണ്ടായത് സംസ്ഥാനത്ത് ഏഴിടങ്ങളിലാണ് ഇത്തരം പ്ലാന്റുകൾ സ്ഥാപിക്കുക ഇതിൽ ആദ്യത്തേത് കോഴിക്കോട്ടായിരിക്കും

കുടുംബശ്രീ കാസർകോട് ജില്ലാ മിഷന്റെ തനത് പദ്ധതിയായ ഗ്രാമകിരണിന് സംസ്ഥാന ഗവൺമെന്റിന്റെ അംഗീകാരം ലഭിച്ചു കുടുംബശ്രീ വനിതകളും യുവശ്രീ അംഗങ്ങളും പുരുഷൻമാരും ചേർന്ന് തയാറാക്കിയ എൽ